പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും

വൻ വർധന

സ്റ്റ്സ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചക്ക് ശേഷം ബിഹാർ തലസ്ഥാനമായ പട്നയിൽ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ

ക്സാസ്റൂമുള്ള ആദ്യ സംസ്ഥാനമായി കേരളം

കൊൽക്കത്തയെയും ചെന്നൈ ബംഗളൂരുവിനെയും നേരിടും

ഗ്രാമീണ ഇന്ത്യയെ പരിവർത്തനാത്മക സ്വാധീനം ചെലുത്തുകയും ആളുകളെ ശാക്തികരിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം ഉദ്ഘാടനത്തോട നുബന്ധിച്ച് ഒരു ലക്ഷത്തോളം പ്രോപ്പർട്ടി ഉടമകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്ന എസ്

എസ് ലിങ്ക് വഴി പ്രോപ്പർട്ടി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും

വായ്പയും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നതിന് ഗ്രാമീണരുടെ സാമ്പത്തിക ആസ്തിയായി സ്വത്ത് ഉപയോഗിക്കുന്നതിന് ഈ നീക്കം വഴിയൊരുക്കും

നിലവിലെ ഖാരിഫ് കാലയളവിൽ പഞ്ചാബിലെ നെല്ല് സംഭർണത്തിൽ വൻ വർധന ഉണ്ടായതായി കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു

സിആർപിസി പ്രകാരമുള്ള കുറ്റകൃതൃങ്ങളിൽ പ്രാഥമിക വിവര റിപ്പോർട്ട് കർശനമായും രജിസ്റ്റർ ചെയ്യണമെന്ന് ആഭ്യന്തരമന്ത്രാലയം നിർദ്ദേശ ത്തിൽ ചൂണ്ടിക്കാട്ടി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നീതി ഉറപ്പാക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കും

വിശദാംശങ്ങളുമായി അരവിന്ദ് വോയിസ് നിലവിലെ റിപ്പോ നിരക്ക് തുടരാനുള്ള തീരുമാനം പണപ്പെരുപ്പത്തെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ സാമ്പത്തികരംഗ്ലത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതാണെന്നു വിദഗ്ദർ അഭിപ്രായിപ്പെട്ടു ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ഉന്നമന്ത്തിനായി കേന്ദ്രബാങ്കുകൾ സ്വീകരിക്കേണ്ട നടപടികൾക്ക് ഉദാഹരണമാണ് ആർബിഐയുടെ നിലപാടുകൾ എന്ന് പുതിയ് എസ് ബി ഐ ചെയർമാൻ അഭിപ്രായപ്പെട്ടു

റിസർവ് ബാങ്ക് നടത്തിയ നടപടികൾ രാജ്യത്ത് പണലഭൃത ഉറപ്പാക്കുന്നതിനും കൂടുതൽ വളർച്ച കൈവരിക്കുന്നതിനും ഉപകരിക്കുന്നത് ആണെന്ന് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ഡെപ്യൂട്ടി ചെയർമാൻ രാജ് കിരൺ റായി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒഴികെ പ്രചാരണപരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന ചട്ടങ്ങളും ഭരണകൂടം പുറത്തിറക്കിയിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സൊണുകൾക്ക് പുറത്തുള്ള രാഷ്ട്രീയ പ്രചാരണ യോഗങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് അധികാരം നൽകി ആഭ്യന്തരമന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു

ഇന്നലെ പട്നയിൽ എത്തിച്ച അദ്ദേഹത്തിൻറെ ഭൌതികശരീര്യ് എൽ ജെ

പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് രാഷ്ട്രപതി രാം നാഥ് ക്രോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്നിവർ ഇന്നലെ ന്യൂ ഡൽഹിയില്ലെ പാസ്വാന്റെ ഔദ്യോഗിക വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു കേന്ദ്രമന്ത്രിമാരായ രാജ് നാഥ് സിംഗ് അമിത് ഷാ രവിശങ്കർ പ്രസാദ് ഹർഷ് വർധൻ ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദ എന്നിവരും പാസ്വാന് അന്ത്യാഞ്ജലി അർപ്പിച്ചു

തുടർന്ന് പ്രാദേശിക ഭാഷകളിലുള്ള പരിഭാഷയും ഉണ്ടാവും

കൈറ്റിന്റെ നേതൃത്വത്തിൽ കിഫ്ബിയുടെ ധനസഹായ ത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്

രാജ്യത്തെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന്യാണ് ഉണ്ടാകുന്നത്

നയതന്ത്രം ചികിത്സ വ്യവസായം മാധ്യമ പ്രവർത്തനം തൊഴിൽ എന്നീ ആവശ്യങ്ങൾക്കായി ഇന്തൃയിലെത്താനുള്ള വിസകൾ നൽകുന്നതാണ് പുനരാരംഭിച്ചത്